പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു

ഡി

അല്പസമയത്തിനകം പത്തനംതിട്ടയിൽ വെകുന്നേരം തിരുവനന്തപുരത്ത് റാലിയിൽ പങ്കെടുക്കും

തയ്യാറാകുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈദ്യതി ബോർഡും അദാനിയും തമ്മിലുള്ള കരാറിൽ ദുരൂഹത ആരോപിച്ച് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല

കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് സ്വീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം

ന്റെയും സ്മരണ പുതുക്കി ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു

വോയ്സ് വികസനത്തിലൂന്നിയുള്ള എൽഡിഎഫ് പ്രചാരണത്തിന് ദേശീയ നേതാക്കളെ അണിനിരത്തി പ്രതിരോധം തീർക്കുകയാണ് യു ഡി എഫും എൻ

തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുൻ തൂക്കം തുടക്കത്തിൽ ആത്മവിശ്വാസത്തോടെയുള്ള പ്രചാരണത്തിന് എൽഡിഎഫിനെ സഹായിച്ചു

ആഴക്കടൽ മത്സ്യ ബന്ധനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചർച്ചകൾ ഇപ്പോഴും തീരമേഖലകളിൽ സജീവമാക്കി നിർത്താൻ യു ഡി എഫ് ശ്രമിക്കുന്നുണ്ട്

വീടുതോറും കയറിയിറങ്ങിയുള്ള ചിട്ടയായ പ്രചാരണത്തിലും രാഷ്ട്രീയ കക്ഷികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വിജയ്റാലിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി

ഇൻട്രോ തെരഞ്ഞെടുപ്പിന് നാല് ദിവസം മാത്രം ബാക്കി നിൽക്കേ ആവേശം നിറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് പത്തനംതിട്ട ജില്ല സാക്ഷിയാകുന്നത് പ്രചാരണത്തിന് ശക്തിപകരാൻ പ്രധാന നേതാക്കളെ മുന്നിലിറക്കിയാണ് മൂന്ന് മുന്നണികളും ജനവിധിക്കായി തയാറെടുക്കുന്നത്

വികസസ്ക്കാട്ടരു്ങ്ങളെ കുറിച്ച് ചർച്ച ചെയാൻ പ്രതിപക്ഷം തയ്യാറാവുന്നില്ലെന്ന് മുഖ്യമന്ത്രിപറഞ്ഞു

മണി അദാനിയുമായി വൈദ്യതി ബോർഡ് കരാറിൽ ഏർപ്പെട്ടു എന്ന പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം ്നിഷേധിച്ച് വൈദ്യുതി മന്ത്രി എം

അദാനിയുമായി അത്തരം ഒരു കരാർ ഇല്ലെന്നും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനവുമായാണ് കരാർ എന്നും അദ്ദേഹം പറഞ്ഞു

തെരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർ തപാൽ വോട്ടിന് അപേക്ഷിക്കേണ്ടതാണ്

വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ

അതേസമയം രാജ്യത്ത് കോവിഡ് കേസുക്ളീൽ തുടർച്ചയായ വർദ്ധനയാണ് രേഖപ്പെടുത്തുന്നത്

വരയാടുകളുടെ പ്രജനന കാലവുമായി ബന്ധപ്പെട്ട് രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് ദേശിയോദ്യാനം അടച്ചത്

ടാങ്കറിന്റെ ഇന്ധനടാങ്ക് പൊട്ടിയതാണ് ലോറിയിലേക്ക് തീ പടരാൻ കാരണമായത്

കർശന കോവിഡ് മാനദണ്ഡങ്ങൾ പ്രൂപ്പിച്ച് കുരുശിന്റെ വഴി പ്രത്യേക ശുശ്രൂഷകൾ എന്നിവ നടന്നു തിരുവനന്തപുരം പേരൂർക്കട സെന്റ് മേരീസ് പള്ളിയിൽ മാർ ് ബസേലിയോസ് ക്സിമ്മിസ് കത്തോലിക്കാ ബാവയും എറണാകുളം കൊക്കനാട് സെന്റ് തോമസ് പള്ളിയിൽ സീറോ മലബാർ സഭ അദ്ധ്യക്ഷൻ മാർ ജോർജ്ജ് ആലഞ്ചേരിയും ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി